ഇന്ത്യയും ചൈനയും തമ്മിലുള്ള കരാറുകൾ പൂർണമായും പാലിക്കപ്പെട്ടാലേ സ്ഥിതി സാധാരണ നിലയിലെത്തുകയുള്ളു വെന്ന് വിദേശകാര്യ മന്ത്രി എസ്

തിക്രമം നടത്തുന്നവർക്കെതിരെ കർശന നടപടിയെന്ന് മുഖ്യ മന്ത്രി പിണറായി വിജയൻ

പാരമ്പര്യമായി നേരിടുന്ന വെല്ലുവിളികളെയും പുതിയ സാഹചര്യങ്ങളെയും ഇരു രാജ്യങ്ങളും അഭിസംബോധന ചെയ്യുന്നതിനാൽ മൂന്ന് പതിറ്റാായി ബന്ധം സുസ്ഥിരമാണെന്ന് ഇന്ത്യ ചൈന ബന്ധത്തെക്കുറിച്ച് സംസാരിച്ച മന്ത്രി പറഞ്ഞു യഥാർത്ഥ നിയന്ത്രണ രേഖയെ സംബന്ധിച്ചിടത്തോളം ഏകപക്ഷീയമായി സ്ഥിതിഗതികൾ മാറ്റാനുള്ള ശ്രമം അംഗീകരിക്കാ നാവില്ലെ ന്നും ആകാശവാണി സംഘടിപ്പിച്ച സർദാർ പട്ടേൽ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു

രാജ്യത്തെ ചരക്ക് പ്രസ്ഗവന നികുതി വരവിൽ മികച്ച പുരോഗതി നേടിയതായി ധനമിന്റെട്ടാല്യം അറിയിച്ചു

ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി നികുതിവരവ് ക്രമേണ വർധിച്ച് വരികയാണ് ഒക്ടോബറിൽ ലഭിച്ച ജി എസ്

ചരക്കു നീക്കങ്ങളിൽ നിന്നാണ് കഴിഞ്ഞ മാസം റെയിൽവേയ്ക്ക് മികച്ച നേട്ടമുായത്

മൂന്നാം ദിവീസവും ലക്ഷത്തിന് താഴെയാണ് ചികിത്സയിലുള്ളവരുടെ എണ്ണം

രാജ്യത്ത് കോവിഡ് മരണനിരക്കും കുറയുകയാണ്

ഇന്ത്യയിൽ ഇത് ലോക ശരാശരി പരിഗണിക്കുമ്പോൾ ഏറ്റവും താഴ്ന്ന നിലയിലാണ്

എല്ലാ പോലീസ് ജീല്ലക്ളിലും സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനുകൾ നിലവിൽ വരുന്നത് സൈബർ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു സ്ഥാപനങ്ങളിൽ ചടങ്ങുകൾ

ഗ്രന്ഥശാലകളും സാംസ്കാരിക സ്ഥാപനങ്ങളും ഓൺലൈൻ മത്സരങ്ങളും സംഘടിപ്പിച്ചു

മുഖ്യമന്ത്രി പിണറായി വിജയൻ മലയാളദിന സന്ദേശം ഓൺലൈനിൽ നൽകി ഭരണഭാഷയായി മലയാളം ഉപയോഗിക്കാത്തവർക്കെതിരെ ആവശ്യമെങ്കിൽ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ സർക്കാർ മടിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു

അഞ്ചു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം

ആയുഷ് മന്ത്രാലയവും ഇൻവെസ്റ്റ് ഇന്ത്യയും സഹകരിച്ചാണ് ഇതിന് രൂപം നൽകുന്നത് ഭാവി ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾക്ക് മേഖലയെ സജ്ജമാക്കാൾ മന്ത്രാലയം ആരംഭിച്ച വിവിധ പരിപാടികളുടെ ഭാഗമാണിത്

ദൊരൈകണ്ണിന്റെ നിര്യാണത്തിൽ ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡുവുംപ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം അറിയിച്ചു കർഷകരുടെ ക്ഷേമ ത്തിനായി നിസ്വാർത്ഥ സേവനമാണ് അദ്ദേഹം നടത്തിയിരുന്നതെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു സാമൂഹ്യസേവനത്തിലും കർഷകരുടെ ശാക്തീകരണത്തിലും അദ്ദേഹം സവിശേഷ ശ്രദ്ധ നൽകിയിരുന്ന തായി പ്രധാനമന്ത്രി അനുസ്മരിച്ചു കോവിഡ് ബാധയെ തുടർന്ന് ഇന്നലെ രാത്രിയാണ് ദൊരൈകണ്ണ് അന്തരിച്ചത്

മണ്ണിടിച്ചിലിൽ നാല് പേർ മരിച്ചു

ഓസ്ട്രിയയിൽ പ്രഖ്യാപിച്ച് രാത്രികാല കർഫ്യൂ ചൊവ്വാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും

ക്സാസ് മുറികൾ അധ്യാപകരുടെ വിശ്രമമുറികൾ ഭിന്നശേഷിക്കാർക്കും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പ്രത്യേകം പ്രത്യേകം ശുചിമുറികൾ എന്നിവ ഇതിന്റെ ഭാഗമായി നിർമിക്കും ശിലാസ്ഥാപന ചടങ്ങ് ഇന്ന് വിവിധ ജില്ലകളിൽ നടന്നു

പോലീസിന് വേി രൂപകൽപന ചെയ്ത വീഡിയോ കോൺഫറൻസ് സംവിധാനം ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം